എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആശുപത്രി സൌകര്യം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുഷ്മാൻ പദ്ധതിയിലൂടെ ഒന്നര ലക്ഷം ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി

വി പാറ്റ് നിന് മെഷീനുകൾ ഉപയോഗിക്ക്ാൻ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

വൃക്തിഗത വിവരങ്ങളിൽ ആധാർ ഉപയോക്താക്കൾ മുഖം കൂടി വൃക്തമാക്കണമെന്ന് യു

ഗെയിംസിൽ ഇന്ത്യ ഇന്ന് രണ്ട് സ്വർണ്ണവും രണ്ട് വെങ്കലവും സ്വന്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് എന്നീ പദ്ധതികളിലൂടെ രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ സമൂല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ ജീവൻ രക്ഷാ മരുന്നുകൾ വിലകുറച്ച് നൽകിയതിലൂടെ അമിത വില ഈടാക്കുന്ന ശക്തികളെ ചെറുക്കാനായി രാജ്യത്തെ വിവിധ ജില്ലകളിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പുറ്മെ ആരംഭിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ആറ് ലക്ഷ്യം ഗ്രാമീണർക്ക് പ്രയോജനപ്പെടും

ഇത് ഗ്രാമീണ മേഖലയിലെ സ്ഥകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു പൊതുയോഗത്തിൽ പ്രധാൻമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി നൽകിയ ഒരു ലക്ഷത്തി പതിനയ്യായിരം വീടുകളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാമന്ത്രി നിർവ്വഹിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

റാവത്ത് കൂട്ടിച്ചേർത്തു

അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ മിസ്റ്റോറാം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു

പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ജി

സിംഗിന് മുമ്പാകെയാണ് പഹാദ്സിംഗ്ഗ് കീഴടങ്ങിയത്

അതേസമയം ബിജാപൂർ ജില്ലയിലെ കുട്റു പ്രദേശത്ത് നിന്ന് മൂന്ന് മാവോയിസ്റ്റുകളെ പോലീസ് അറസ്റ്റു ചെയ്തു

റെയിൽവേ വികസനം സംബന്ധിച്ചു വിവിധ പദ്ധതികൾക്ക് മഹാരാഷ്ട്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയതിനെ തുടർന്നാണ് തീരുമാനം മുംബൈയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയുഷ് ഗോയലും മഹാരാഷ്ട്ര മുഖൃമന്ത്രി ദേവന്ദ്ര ഫട്നാവിസുമായി നടന്ന കൂടിക്കാഴ്ചയിൽ മഹാരാഷ്ട്രയിൽ മുടങ്ങിക്കിടക്കുന്ന റെയിൽവേ അനുബന്ധ പദ്ധതികളുടെ അവലോകനം നടന്നു

പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളോടൊപ്പം മുസ്ലീം വിഭാഗത്തിലെ നിരവധി സ്ത്രീകളും പിന്നാക്ക വിഭാഗക്കാരും മുദ്ര പദ്ധതി പ്രയോജനപ്പെടുത്തിയതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു

ഉത്രാടദിനമായ ഇന്മ് സംസ്ഥാനത്തെ വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ ഒട്ടും തിരക്കില്ലാത്ത സ്ഥിതിയാണ്

ഓതന്റിഫിക്കേഷൻ സർവ്വീസ് ഏജൻസീസ് ഓതന്റിഫിക്കേഷൻ യൂസർ ഏജൻസീസ് സർട്ടിഫൈഡ് ബയോമെട്രിക് ഡിവൈസ് പ്രൊവൈഡേഴ്സ് എന്നിവർക്ക് യു

ഐ നൽകിയ ഔദ്യോഗിക സർക്കുലറുകളിൽ ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇപ്പോൾ മൊബൈൽ സിം കാർഡ്ട് എടുക്കുന്നതിനും ബാങ്ക് പൊതുവിതരണ കേന്ദ്രം ഓഫീസ് ഹാജർ എന്നിവയ്ക്കാണ് ആധാർ നിർബന്ധമാക്കിയിട്ടുള്ളത് പ്രായിമേറുമ്പോൾ വിരലടയാളം ലഭ്യമല്ലാതെ വരുന്നതും സാങ്കേതിക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യും വ്യക്തമാക്കണമെന്ന നിർദ്ദേശം യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത്

ആകാശവാണിയുടെയും ദൂരദർശന്റയും എല്ലാ നിലയവും പരിപാടി പ്രക്ഷേപണം ചെയ്യും

ആകാശവാണി ഡി ഡി ന്യൂസ് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി തുടങ്ങിയ വെബ്സൈറ്റിലും പരിപാടി കേൾക്കാം

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് തെരഞ്ഞെടുപ്പിനായുള്ള നോമിനേഷൻ പേപ്പർ തടഞ്ഞുകൊണ്ടുള്ള ഹർജി തള്ളിയത്

ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്ത് നിന്നും ആയുധങ്ങളും മറ്റു സാമഗ്രികളും ലഭിച്ചതായി പൊലീസ് വൃത്തങ്ങൾ അറിയിച്ചു പ്രദേശത്ത് ഭീകരർ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെട്ടിയുതിർക്കുകയായിരുന്നു രണ്ട് തീവ്രവാദികൾ കൂടി പ്രദേശ്ത്തൂണ്ടെന്നും അവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജില്ലയിലും സമീപപ്രദേശത്തും ഇന്റർനെറ്റ് സേവനം നിർത്തിപ്പച്ചിരിക്കുകയാണ്

പുരുഷ വിഭാഗം ടെന്നീസിലും തുഴച്ചിൽ മത്സരത്തിലുമാണ് സ്വർണ്ണം നേടിയത്

കേന്ദ്ര സ്പോർട്സ് മന്ത്രി കേണൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറും വിജയികളെ അഭിനന്ദിച്ചു

സംസ്ഥാന ബി ജെ

വിടവാങ്ങിയ നേതാവിന് പാർട്ടി നേതാക്കളും നിരവധി ബി ജെ പി എം എൽ

അതിനുശേഷം സംസ്ഥാന കൺവെൻഷൻ സെന്ററിൽ അടൽ ബിഹാരി വാജ്പേയ്യുടെ സ്മരൂണയ്ക്കായി സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിച്ച അനുശോചന്റ് സ്മ്മേളനത്തിൽ ശ്രീ

മിശ്ര മുഖ്യമന്ത്രി പേമാഖണ്ഡു ഉപമുഖൃമിത്രി ചൌവ്നാ മെയിൻ സംസ്ഥാന മന്ത്രിമാർ മുതിർന്ന ബി

പി നേതാക്കൾ പ്രതിപക്ഷ നേതാക്കൾ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു

നിതി ആയോഗ് വൈസ് ചെയർമാൻ ഡോ രാജീവ് കുമാറാണ് റിപ്പോർട്ടുകൾ പ്രകാശനം ചെയ്തത് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സി ഇ ഒ അമിതാഭ് കാന്ത് മെമ്പർ ഡോ

ഹിമാലയൻ പ്രവിശൃയിലെ ജലസുരക്ഷ ടൂറിസം വികസനം കൃഷി താഴ്വരകളിലെ സംരംഭകത്വ ശാക്തീകരണം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ എന്നീ ഊന്നൽ നൽകിയിരിക്കുന്നത്

ഖര മാലിന്യം ശുദ്ധജലം ഗതാഗതം ജൈവവൈവിധ്യ നഷ്ടം എന്നിവയാണ് ടൂറിസം നേരിടുന്ന പ്രതിസന്ധികൾ